വോട്ടെണ്ണൽ അൽപസമയത്തിനകം ആരംഭിക്കും വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഫലസൂചനകളും ഫലങ്ങളും അപ്പപ്പോൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ സൌകരൃം ഒരുക്കിയിട്ടുണ്ട്

വോട്ടെണ്ണലിന്റെ പൂർണവിവരങ്ങൾ തുടർച്ചയായി വെബ്സൈറ്റിലൂടെ അറിയാനാവും മധ്യപ്രദേശിൽ വോട്ടെണ്ണൽ പൂർണമായും വീഡിയോയിൽ പകർത്തും

വോട്ടെണ്ണലിന്റെ ഭാഗമായി ആകാശവാണി ദേശീയ വാർത്താ വിഭാഗം വാർത്താ പ്രക്ഷേപണത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്

തുടർന്നുള്ള വാർത്താ പ്രക്ഷേപണത്തിന്റെ സമയവും ദീർഘിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത പൊതു തിരഞ്ഞെടുപ്പിനു മുമ്പുള്ള പാർലമെന്റിന്റെ സമ്പൂർണ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്

ദിവസത്തെ സ്ന്ദർശനത്തിനായി അദ്ദേഹം നാല് ഇന്നലെ മ്യാൻമറിലെത്തി

ഉഭയകക്ഷി ബന്ധം നിക്ഷേപം കൃഷി എന്നിവ ചർച്ചയ്ക്ക് വരും പിവിധ കരാറുകളിൽ ഒപ്പിടുകയും സംയുക്ത പ്രസ്താവന കൈക്കൊള്ളുകയും ചെയ്യും

രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന വോട്ടെടുപ്പ് രണ്ട് മണിക്ക് അവസാനിക്കും തുടർന്ന് വോട്ടെണ്ണൽ ആരംഭിക്കും

ഞായറാഴ്ചയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്നത് വോട്ടെണ്ണൽ നാളെ നടക്കും

മുംബൈയിൽ ഉജ്ജല സമ്മേളനത്തിൽ സ്ക്സാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാൻമന്ത്രി ഉജ്ജിൽക്ക് യോജനയും സൌഭാഗ്യ യോജനയും സ്ത്രീശാക്തീകരണത്തെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്

വൈദ്യുതവാഹനനയം നടപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതവാഹനനയം നടപ്പാക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം

നിർമിതബുദ്ധി മെഷിൻ ലേണ്ണിർഗ്ഗ് ഡാറ്റ ശാസ്ത്രം തുടങ്ങിയവയാണ് ഹബ്ബിലെ സവിശേഷ കേന്ദ്രങ്ങൾ

ശബരിമല വിഷയം ഉന്നയിച്ച് നിരാഹാരമിരുന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണന്റെ സമരം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപിയും യുവമോർച്ച പ്രവർത്തകരും നടത്തിയ സെക്രട്ടേറിയേറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ആരോഗൃനില മോശമായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയ എ

അദ്ദേഹത്തിനു പകരം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി

പത്മനാഭൻ നിരാഹാരം ആരംഭിച്ചു

പാകിസ്ഥാൻ ബൽജിയുവുമായും നെതർലാന്റ്സ് കാനഡയുമായും ഏറ്റുമുട്ടും

അഹമ്മദാബാദിലുളള ആദർശ് ക്രഡിറ്റ് സഹകരണ സംഘത്തിൽ നിന്ന് വൻതോതിൽ വായ്പ എടുത്തതിനുശേഷം തിരിച്ചടക്കാത്തതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്

വിധി തൃപ്തികരമാണെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ യു

അധികൃതരോട് ഇന്ത്യയ്ക്ക് നന്ദിയുണ്ടെന്ന് വക്താവ് വൃക്തമാക്കി